മുന്നിൽ മുന്നേറ്റം കാഴ്ച വച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കിട്ടു ബാത്തിൽ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കൂർന്ന് പ്ലാസ്റ്റിക്ക് ഒഴിവാക്കാണമെന്നും പ്രധാന്റമുന്തി

ഇ സിഗരറ്റിനെക്കൂറിച്ചുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കണമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു

ഫ്ളാറ്റുകളിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു

നാമനിർദ്ദേശപത്രിക സമർപ്പണം നാളെ അവസാനിക്കും

പരമ്പരയുടെ മൂന്നാമത്തെ മത്സരം ഇന്ന് വൈകുന്നേരം സൂററ്റിൽ

സാധാരണ സിഗരറ്റ് പോലെ ഇലക്ട്രോണിക് സിഗരറ്റും അപകടകാരിയാണെന്നും എന്നാൽ ഇലക്ട്രോണിക് സിഗരറ്റിന് അപ്പക്ടമില്ലെന്ന തെറ്റിദ്ധാരണ ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി പ്രിയ്ത്തു പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് യുവതലമുറ രാജ്യത്തിന്റെ ഭാവിയാണ് ലഹരിയുടെ ഈ പുതിയ രീതി നമ്മുടെ യുവത്വത്തെ നശിപ്പിക്കാതിരിക്കാനും ഈ ശീലം സമൂഹത്തിൽ സിഗരറ്റ് വേരുകൾ പടർത്താതിരിക്കാനും ഇ രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇപ്രാവശൃർ ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് സ്പോട്സ് മന്ത്രാലയവും ഫിറ്റ് ഇന്ത്യ പ്ലോഗിംഗ് സംഘടിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി വൃക്തമാക്കി രാജ്യമെമ്പാടും നടക്കുന്ന ഈ പരിപാടിയിൽ നാം രണ്ടു കിലോമീറ്റർ ജോഗിംഗ് ചെയ്യുകയും ഒപ്പം വഴിയിൽ കാണുന്ന പ്ലാസ്റ്റിക് മാലിനൃങ്ങൾ പെറുക്കിയെടുത്ത് മാലിന്യമുക്തിയുടെ കാര്യത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയുമാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ത്യ കാതലായ ബന്ധപ്പെട്ട കൈവരിച്ചിട്ടുണ്ടെന്നും സ്വച്ഛതയുമായി പുരോഗതി പരിപാടികൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മരട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് മുന്നോടിയായി താമസ്സക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു

ഫ്ളാറ്റുകൾ പൊളിക്കാൻ നിയന്ത്രിത സ്ഫോടനം ഉപ്പയോഗിക്കുമെന്ന് മരട് നഗരസഭ സെക്രട്ടറി അറിയിച്ചു

അതിനിടെ ഫ്ളാറ്റുടമകൾക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജ് കെ

ഇന്നലെയും ഇന്നും അവധി കാരണം പത്രിക സമർപ്പണം ഇല്ല

ഡി എഫ് സ്ഥാനാർത്ഥികളെയും എൽ

ജെ പി സ്ഥാനാർത്ഥികളെ ജൂന്ന് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ

തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥാനാർത്ഥിയും ചെലവഴിക്കുന്ന തുകയാണ് കമ്മറ്റി നിരീക്ഷിക്കുക

പാലക്കാട് ജില്ലയിലെ അഗ്രഹാരങ്ങളും ക്ഷേത്രങ്ങളും നവരാത്രി ആഘോഷ നിറവിലാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

വനിത ഹോക്കി സംസ്ഥാന ജൂനിയർ വനിത ഹോക്കി ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം ആറ് മുതൽ എട്ട് വരെ കാസർഗോഡ് ചീമേനിയിൽ നടക്കും

രാജ തിരുവനന്തപുരം എന്നീ ടീമുകളും പങ്കെടുക്കും

ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഗോൾ രഹിത സമനിലയിലായിരുന്നു

മലയാളികളായ മുഹമ്മദ് അ്നസ് വി

മന്ത്രി കെ രാജു ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും

ചലച്ചിത്രോത്സവത്തിലേക്കായി രജിസ്റ്റർ ചെയ്ത ഡെലിഗേറ്റുകൾ പുതിയതായി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല